എസ് എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സിന് തോൽവി വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന മികച്ച രാഷ്ട്രത്തലവനായി അമേരിക്കൻ ഗവേഷണ സ്ഥാപനം തെരഞ്ഞെടുത്തു

ആഗോള അംഗീകാരം ലഭിച്ച പ്രധാനമന്ത്രിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുമോദിച്ചു കോവിഡ് മഹാവ്യാധിയെ നേരിടാൻ നരേന്ദ്രമോദി സ്വീകരിച്ച നടപടികളെ ലോകസമൂഹം അഭിനന്ദിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രവാസി ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനും ലോകസമൂഹത്തിന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം നൽകുന്ന സഹായത്തിനും ലഭിച്ച അംഗീകാരമാണ് ഇതെന്നും അമിത് ഷാ വിലയിരുത്തി

രാജ്യത്തിന് അഭിമാനത്തിന്റെ സന്ദർഭമാണ് ഇതെന്ന് ജാവ്ദേക്കർ പറഞ്ഞു രംഭ രാജ്യത്ത് രണ്ട് കോവിസ് വാക്സിനുകളുടെ ഉപയോഗത്തിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഇന്ന് അനുമതി നൽകിയേക്കും

സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന കോവിഷീൽഡ് വാക്സിനും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനും ഉപയോഗിക്കാൻ കേന്ദ്രം നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ശുപാർശ നൽകിയിരുന്നു കോവിഷീൽഡ് അടിയന്തര ഉപയോഗത്തിനും കോവാക്സിൻ നിയന്ത്രിത സാഹചര്യങ്ങളിലെ ഉപയോഗത്തിനും അനുമതി നൽകാനായിരുന്നു ശുപാർശ വാക്സിനുകളുടെ സുരക്ഷിതത്വവും ഉപയോഗക്ഷമതയും സംബന്ധിച്ച് പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കരുതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ

മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് വാക്സിനുകൾ മനുഷ്യോപയോഗത്തിന് അനുവദിച്ചതെന്നും ഡോ

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ കോവിഡ് ബാധിതർ

രും കോവിഡ് മഹാമാരിയുടെ ലോകത്തെ സാഹചര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വിവിധ രാജ്യങ്ങളിലെ മലയാളി മാധ്യമ പ്രവർത്തകർ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുവെന്ന് മിസോറാം ഗവർണർ പി

ഗ്ലോബൽ മലയാളി പ്രസ് ക്ലബ്ബ് ലോഗോ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

വി ശ്രേയാംസ്കുമാർ എം പി ജോർജ്ജ് കള്ളിവയൽ തുടങ്ങിയവർ സംസാരിച്ചു രുര നായർ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന് ജന്മദിനമായ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു സാമൂഹ്യ നീതിയ്ക്കും സമുദായ ക്ഷേമത്തിനും സാംസ്കാരിക പുനരുദ്ധാരണത്തിനും മന്നത്ത് പത്മനാഭന്റെ സംഭാവനകൾ പ്രധാനമന്ത്രി അനുസ്മരിച്ചു കേന്ദ്രമന്ത്രി അമിത്ഷായും മന്നത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു രുഭ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ മെട്രോളജി സമ്മേളനം വിഡിയോ കോൺഫറൻസിംഗിലൂടെ നാളെ ഉദ്ഘാടനം ചെയ്യും ദേശീയ ആണവ സമയ മാനക സംവിധാനവും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും ലബോറട്ടറി ഉപകരണങ്ങളുടെ കൃത്യത ഉറപ്പാക്കുന്ന ഭാരതീയ നിർദേശക് ദ്രവ്യ പരിശോധനാ സമ്പ്രദായവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ആഗോള നിലവാരത്തിലേക്ക് ഉപകരണങ്ങളുടെ കൃത്യത ഉയർത്തുന്ന പരിശോധനാ രീതിയാണിത് ദേശീയ പരിസ്ഥിതി നിലവാര ലാബിനും പ്രധാനമന്ത്രി തറക്കല്ലിടും

തോമസ് വിന്റർബർഗിന്റെ അനദർ റൌണ്ട് ആണ് മേളയിലെ ഉദ്ഘാടന ചിത്രം സന്ദീപ് കുമാറിന്റെ മെഹറുന്നീസ മേളയിൽ പ്രദർശിപ്പിക്കും

രംഭ കേന്ദ്ര ഗവൺമെന്റും സമരം ചെയ്യുന്ന കർഷക സംഘടനകളുമായി ഏഴാംവട്ട ചർച്ച നാളെ ന്യൂഡൽഹിയിൽ നടക്കും ആറാംവട്ട ചർച്ചയിൽ കർഷകരുടെ രണ്ട് ആവശ്യങ്ങളിൽ ധാരണയിൽ എത്തിയിരുന്നു കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്രതോമറും പീയൂഷ് ഗോയലുമാണ് കഴിഞ്ഞ വട്ടം ചർച്ചകളിൽ പങ്കെടുത്തത്

വാർധക്യ സഹജമായ അസുഖത്തെത്തുടർന്ന് ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

കേരള സാഹിത്യ അക്കാദമി അവാർഡ് സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം മുലൂർ സ്മാരക അവാർഡ് കനകശ്രീ പുരസ്കാരം എന്നിവയടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടി ചമത ഈറ്റില്ലംചിത തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ മന്ത്രി എ

മാനുഷിക മൂല്യങ്ങളിൽ അടിയുറച്ച കാവ്യജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെതെന്ന് മന്ത്രി അനുസ്മരിച്ചു

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പാർട്ടി നേതാവ് പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയവരും അനുശോചനം അറിയിച്ചു രംഭ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്നലെ കേരളാ ബ്ലാസ്റ്റേഴ്സിന് പരാജയം മുംബൈ സിറ്റി മറുപടിയില്ലാത്ത രണ്ട് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത്

രംഭ നെഞ്ചുവേദനയെത്തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രസിഡന്റും മുൻ ഇന്ത്യൻ ക്യാപ്റ്റനുമായ സൌരവ് ഗാംഗുലിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കൊൽക്കത്തയിലെ ആശുപത്രി അധികൃതർ അറിയിച്ചു നേരിയ ഹൃദയാഘാതമുണ്ടായതിനെത്തുടർന്ന് അദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി ഹൃദയ ധമനിയിൽ മൂന്ന് ബ്ലോക്കുകൾ ഉണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു

ശൈലജ തിരുവനന്തപുരത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു നിർഭയ ദിനം മുതൽ മാർച്ച് എട്ട് വനിതാ ദിനം വരെ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത ബസ് സർവ്വീസ് നടത്തും

നവീകരിച്ച പാലക്കാട് പ്രസ് ക്ലബ്ബ് കെട്ടിടവും വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും രുമ കോഴിക്കോട് കോർപ്പറേഷനിൽ ഏഴ് സീറ്റുകളിൽ വിജയിക്കാനായതും ഭൂരിഭാഗം വാർഡുകളിലും വോട്ട് നിലയിൽ നല്ല മുന്നേറ്റം നടത്തിയതും കോഴിക്കോട്ട് ബി ജെ പിയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് ജില്ലാ നേതൃയോഗം വിലയിരുത്തി ജില്ലാ നേതൃയോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു രും ജനകീയതയും ടെക്നോളജിയും ഒത്തുചേരുമ്പോൾ പൊതു വിദ്യാഭ്യാസം ലോകോത്തരമാകുമെന്ന് മന്ത്രി സി

രുര വായ്പാ തിരിച്ചടവിൽ മുടക്കം വന്ന ഉപഭോക്താക്കൾക്കായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അതിജീവനം സമാശ്വാസ പദ്ധതി നടപ്പാക്കുന്നു പ്രളയവും കോവിഡ് മഹാമാരിയും കാരണം പ്രശ്നങ്ങളിലായവരെ സഹായിക്കാനും വായ്പാ തിരിച്ചടവ് മെച്ചപ്പെടുത്താനുമാണ് സമാശ്വാസ പദ്ധതി ലക്ഷ്യമിടുന്നത്

രുര ഇടുക്കി കുളമാവിന് സമീപം ചേരിയിൽ വൈദ്യുതി ടവർ ലൈൻ ഒടിഞ്ഞുവീണ് ഒരാൾ മരിച്ചു തമിഴ്നാട് സ്വദേശി അരുണാചല പാണ്ടിയാണ് മരിച്ചത് സഹായി മരിദുരൈയെ ഗുരുതരമായ പരിക്കുകളോടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു